ഈ സംസ്ഥാനങ്ങളിലെ നിരവധി വികസന പൃദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും

പ്പോയിസ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലും തമിഴ്നാട്ടിലെ തിരുപ്പൂരിലും കർണാടകയിലെ ഹുബ്ലിയിലുമാണ് പ്രധാനമന്ത്രി ഇന്ന് സന്ദർശനം നടത്തുന്നത്

ഇതോടൊപ്പം ഒ

യുടെ വശിഷ്ടയും എസ്

കൃഷ്ണപട്ടണത്ത് നിർമ്മിക്കുന്ന ഭാരത് പെട്രോളിയംകോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ ടെർമിനലിനും പ്രധാനമന്ത്രി തറക്കല്ലിടും തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ഇ

ഐ ആശുപത്രിയുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവ്വഹിക്കും ട്രിച്ചി ചെന്നൈ വിമാനത്താവളങ്ങളുടെ ആധുനികവൽക്കരണവുമായി ബന്ധപ്പെട്ട പുതിയ കെട്ടിടത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും

സി

ചെന്നൈ തുറമുഖത്തുനിന്നും ചെന്നൈ പെട്രോളിയം ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മണാലിയിലുള്ള റിഫൈനറിയിലേയ്ക്ക് അസംസ്കൃത എണ്ണ എത്തിക്കുന്നതിനുള്ള പൈപ്പ് ലൈനും ശ്രീ

കർണാടക ഹൂബ്ലിയിലെ ദർവാദിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ശിലാസ്ഥാപന കർമ്മം പ്രധാന മന്ത്രി നിർവ്വഹിക്കും ദർവാദിലെ സിറ്റി ഗ്യാസ് വിതരണ പദ്ധതിയും ശ്രീ

സംസ്ഥാന ഗവൺമെന്റുകളുടെ ശുപാർശയ്ക്കൊപ്പം മതിയായ അന്വേഷണവും പൂർത്തിയാക്കിയ ശേഷം മാത്രമെ പൌരത്വം നൽകുകയുള്ളുവെന്ന് പ്രധാനമന്ത്രി വൃക്തമാക്കി അസമിലെ ചംങ്സരിയിൽ പൊതുജനറാലിയെ അഭി സംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നിശ്ചിത സമയത്തിനു ള്ളിൽ തന്നെ അസം അക്കോർഡ് നട്ടപ്പിലാക്കാൻ എൻ ഡി എ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്

ബി ഐ

മേഘാലയിലെ ഷില്ലോങ്ങിൽ ഇന്നലെ നടന്ന ചോദ്യം ചെയ്യൽ എട്ട് മണിക്കൂറോളം നീണ്ടു

യും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ കുനാൽ ഘോഷിനെ ഇന്ന് ചോദൃം ചെയ്യലിന് ഹാജരാകാൻ സി ബി ഐ

സത്യ ജിത്ത് ബിസ്വാസ് അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചു നാദിയ ജില്ല യിലെ മജ്ദിയയിലെ ഫുൽബാരിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് ഉടൻതന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷി ക്കാനായില്ല സത്യജിത്ത് ബിസ്വാസ് നാദിയ ജില്ലയിലെ കൃഷ്ണ ഗുഞ്ച് നിയോജക മണ്ഡലത്തിലെ എം എൽ

ആയിരുന്നു സംഭ വത്തിൽ പൊലീസ് അന്വേഷണം ആരംഭിച്ചു സത്യജിത് ബിസ്വാസ് കൊല്ലപ്പെട്ട സംഭവത്തെ മുഖ്യമന്ത്രി മമത ബാനർജി അപലപിച്ചു

ടെക്സ്റ്റൈയിൽ മന്ത്രാല്യത്തിന്റേയും സിൽക്ക് ബോർഡിന്റേയും സംയുക്താഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച് മെഗാ സിൽക്ക് മേളയിൽ പങ്കെടുക്കുകയായിരുന്നു ശ്രീമതി സുഷമസ്വരാജ്

കഴിഞ്ഞ രണ്ട് ദിവസമായി നടത്തുന്ന എയർ ലിഫ്റ്റിംഗിലൂടെ ഇന്ത്യൻ വ്യോമസേന ഇവരെ ശ്രീനഗറിലെയും ജമ്മുവിലെയും വിമാനത്താവളങ്ങളിൽ എത്തിച്ചു

രാജ്യത്ത് കൂടുതൽ എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഗവൺമെന്റ് ഉദ്ദേശി ക്കുന്നതായും ശ്രീ

ജില്ലാ ആശുപത്രികളെ മെഡിക്കൽ കോളേജ് പദവിയിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ പുരോഗമി ക്കുകയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി വഴി ആരോഗ്യ പരിരക്ഷ ഏവർക്കും ലഭ്യമാക്കാൻ കഴിയുമെന്നും ശ്രീ നദ്ദ പറഞ്ഞു

കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി മുഖ്ത്താർ അബ്ബാസ് നഖ്വി രണ്ട് ദിവസത്തെ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഹജ്ജ് ക്രമീകരണങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തതോടെ സബ്സിഡി ഇല്ലാതെ തന്നെ തീർത്ഥാടനത്തിന്റെ ചെലവുകൾ കുറയ്ക്കാനായതായി ശ്രീ

ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള ജി

കൊല്ലം ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിൽ വൈകിട്ട് മൂന്നിനാണ് മത്സരം

മലങ്കര മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ഡോ

ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപൊലിത്ത പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ്നേതൃത്വം നൽകും

എസ് ആർ ടി സി പ്രത്യേക സർവ്വീസ് നടത്തും

മേളയുടെ ഭാഗമായി നടക്കുന്ന മൂന്നാമത്തെയും അവസാനത്തെയും രാജകീയ സ്നാനം ഇന്ന് നടക്കും അഖോരികളും സന്യാസികളും രാജകീയ സ്നാ നത്തിനായി ഗംഗ യമുന സരസ്വതി സംഗമ ഘട്ടത്തിൽ മുങ്ങിനിവ രും

ഉത്തർപ്രദേശിലെ ഭക്ഷ്യോത്പാദന മേഖലയിൽ വൻവളർച്ചയ്ക്ക് ഇത് വഴിവയ്ക്കുമെന്നും അവർ പറഞ്ഞു

പിന്നാക്കക്കാരുടെ സഹതാപം പിടിച്ചുപറ്റാനുള്ള ഇമ്രാൻഖാന്റെ ശ്രമങ്ങളെ ഇന്ത്യ തള്ളിക്കളയുന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യയുടെ മതേതരത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇത്തരത്തിൽ ഒരു പരാമർശത്തിലേയ്ക്ക് ഇമ്രാൻഖാനെ നയിച്ച തെന്നും രവീഷ്കുമാർ പറഞ്ഞു

ഉത്തരാ ഖണ്ഡിൽ ദുരന്തത്തിലകപ്പെട്ട് വിവിധ ആശുപത്രികളിൽ ചികിത്സ യിൽ കഴിയുന്നവരിൽ നിരവധി പേരുടെ നില ഗുരുതരമാണ് ഇവർക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൌകര്യം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി

കേന്ദ്ര റെയിൽവെ കൽക്കരി മന്ത്രി പിയൂഷ് ഗോയൽ ധനമന്ത്രാല യത്തിന്റെ ചുമതലയേറ്റ് ശ്രീ ജെയ്റ്റ്ലിയുടെ അസാന്നിദ്ധ്യത്തിൽ ഇടക്കാല് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നു